ത ഗർഭിണികളായ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഓഫീസുകളിൽ എത്തേണ്ടതില്ലെന്ന് കേന്ദ്ര പഴ്സണൽ വകുപ്പ്

ഒഡീഷയിൽ രണ്ടുപേർ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നാലരയോടെ ബംഗാൾ ഒഡീഷ തീരംതൊട്ട ചുഴലിക്കാറ്റ് തീരമേഖലയെ കശക്കിയെറിഞ്ഞു

ചുഴലിക്കാറ്റിനൊപ്പം അതിശക്തമായ മഴയും ഉണ്ടായതോടെ ഒട്ടേറെ നിലംപൊത്തി മരങ്ങളും വൈദ്യുതിപോസ്റ്റുകളും വീടുകൾ വീണ് വൈദ്യുതിയും വാർത്താ വിനിമയ സംവിധാനങ്ങളും നിലച്ചു ആറര ലക്ഷത്തോളം ആളുകളെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയും പൊലീസും കോസ്റ്റുഗാർഡും രക്ഷാ പ്രവർത്തനങ്ങൾ തുടരുകയാണ് രുദ കോവിഡ് ഭേദമായവരേയും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരേയും സമൂഹം ഒറ്റപ്പെടുത്തരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു അപൂർവ്വം ചിലയിടങ്ങളിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനെതിരായ ബോധവൽക്കരണത്തിന് സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി നടത്തും യുവജനങ്ങൾ മുതിർന്നവർ എന്നിവർക്കിടയിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും ഇവരെ പ്രയോജനപ്പെടുത്തും ഐജിമാരായ എസ് ശ്രീജിത്ത് പി വിജയൻ എന്നിവരെ പ്രചാരണ പരിപാടിയുടെ കോർഡിനേറ്റർമാരായി നിയോഗിച്ചു

കേരളം പ്രവാസികളുടെ കൂടി നാടാണെന്നും അവർക്കു മുന്നിൽ ഒരു വാതിലും കൊട്ടിയടക്കപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അന്യനാടുകളിൽ കഷ്ടപ്പെടുന്ന അവർക്ക് ഏതുഘട്ടത്തിലും മടങ്ങിയെത്താനും നാടിന്റെ സുരക്ഷിതത്വം അനുഭവിക്കാനും അവകാശമുണ്ട് പ്രവാസികൾ രോഗ ബാധിതരാണെന്നോ അകറ്റിനിർത്തപ്പെടേണ്ടവരാണെന്നോ ധാരണ പുലർത്തരുത് ഇത്തരം കുപ്രചരണങ്ങളിൽ ജനങ്ങൾ കുടുങ്ങരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

കണ്ണൂരിലെ ഒരാൾക്കു മാത്രമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്

തൃശൂരിൽ രണ്ട് പേരിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു കൊച്ചി വിമാനത്താവളത്തിലെ പരിശോധനയിലാണ് ഇവരിൽ രോഗ ലക്ഷണം കണ്ടെത്തിയത് രണ്ട് പേർക്ക് രോഗം ഭേദമായി

ഇതോടെ ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ആറായി

രദേ പാലക്കാട് ജില്ലയിൽ ഇന്നലെ ഏഴുപേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

സൌദി അറേബ്യ യുഎഇ ഒമാൻ കുവൈറ്റ് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ഇന്നലെ വിമാന സർവ്വീസുകൾ

റിയാദിൽ നിന്ന് കണ്ണൂരിലേക്കും ദുബായിയിൽ നിന്ന് കൊച്ചിയിലേക്കും കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമായിരുന്നു വിമാനങ്ങൾ

നാളെ മസ്കറ്റിൽ നിന്നും മറ്റന്നാൾ അബുദാബിയിൽ നിന്നും വിമാനങ്ങളെത്തും

കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയ രണ്ട് പാലക്കാട് സ്വദേശികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഹൃദ് രോഗിയായ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു

ഒൻപതു ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി

രാമ ബംഗലൂരുവിൽ നിന്ന് വിവിധ വാഹനങ്ങളിൽ കെ

ടി സി തൃശൂർ സ്റ്റാൻഡിൽ എത്തിയ അഞ്ച് പേരെ പൊലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട് ഹോം ക്വാറന്റൈനിലാക്കി നാലു പേർ തൃശൂർ സ്വദേശികളും ഒരാൾ മലപ്പുറം സ്വദേശിയുമാണ് ദേദ ഗർഭിണികളായ ഉദ്യോഗസ്ഥരേയും ജീവനക്കാരേയും ഓഫീസുകളിൽ എത്തുന്നതിൽ നിന്ന് ഒഴിവാക്കി പഴ്സണൽ ആന്റ് ട്രെയിനിങ്ങ് വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി ഡോ

വിവിധ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വ്യവസ്ഥ ബാധകമാണ്

വികലാംഗ ജീവക്കാർക്കും ഓഫീസിൽ എത്തുന്നതിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് ദേദ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ആളുകളെ തിരികെയെത്തിക്കാൻ ആഭ്യന്തര വിമാന സർവ്വീസുകൾക്ക് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി ഇതിനായി ലോക്ഡൌൺ മാർഗനിർദേശങ്ങൾ ഭേദഗതി ചെയ്തു ലോക്ഡൌണിലെ നിരോധിത പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ നിന്ന് ആഭ്യന്തര സർവ്വീസുകളെ ഇതനുസരിച്ച് ഒഴിവാക്കി

എന്നാൽ ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ മൂലം ഭാഗികമായി മാത്രമേ ബസ്സുകൾ നിരത്തിലിറക്കാൻ കഴിയൂ എന്ന് ബസ്സുടമകളുടെ സംഘടനകൾ അറിയിച്ചു പൊതുഗതാഗതത്തിന് തുടക്കം കുറിച്ച് ഇന്നലെ കെ എസ്ആർ ടി

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സർവ്വീസ് കാസർക്കോട് ജില്ലയിൽ മലയോര പ്രദേശങ്ങളായ പാണത്തൂർ കൊന്നക്കാട് എന്നിവിടങ്ങളിലേക്ക് ഇന്ന് സർവീസ് ഉണ്ടാവും കണ്ണൂരിൽ ഇന്ന് ആറിടത്ത് സ്വകാര്യ ബസുകൾ ഓടും കണ്ണൂർ കൂത്തുപറമ്പ് ഇരിട്ടി പഴയങ്ങാട് തളിപറമ്പ് പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സർവ്വീസുകൾ

എസ് ആർ ടി

കോഴിക്കോട്ടും പാലക്കാട്ടും എറണാകുളത്തും സ്വകാര്യബസ്സുകൾ ഇന്നുമുതൽ നിരത്തിലിറങ്ങും

എയർക്കണ്ടീഷൻ കോച്ചുകളും സാധാരണ സ്ലീപ്പർ കോച്ചുകളും ജനറൽ കമ്പാർട്ടുമെന്റുകളും ഉൾപ്പെടുത്തിയായിരിക്കും ട്രെയിനുകളുടെ സർവ്വീസ് ജനറൽ കമ്പാർട്ടുമെന്റുകളിലും ഐ

സി ടി സി വഴി സീറ്റ് റിസർവ്വ് ചെയ്യേണ്ടതാണ്